ദേശാടന ഇനത്തിൽപ്പെട്ട വനൃജീവികളുടെ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനത്തിന് ഇന്ന് ഗാന്ധിനഗറിൽ തുടക്കമാകും

ലഡാക്കിനേയും ഉടൻ ക്യേന്ദ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പദ്ധിധിയിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര മന്ത്രി ജിതേന്ദ്രസിങ്

തുടരുമെന്നും ഇക്കാരൃത്തിൽ ഇന്ത്യൻ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ്

കെടുത്തുന്നതിനിടെ മൂന്ന് വനപാലകർ മരിച്ചു

ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശാടകർക്ക് ആതിഥ്യമരുളാം എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം

സമ്മേളനത്തിന്റെ ഭാഗ്യമുദ്രയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാഡ് ആണ്

ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞദിവസം ഇസ്ലാമാബാദിൽ ഇതു സംബന്ധിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്നുള്ള മാധ്യമ ചർച്ചയോട് പ്രതികരിക്കവേ വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം പാകിസ്ഥാൻ കൈയടക്കിവച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് ശ്രീ

മറ്റ് വിഷയങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം എടുത്തുപറഞ്ഞു

അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കുന്നതിന് പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യു എൻ സെക്രട്ടറി ജനറൽ ശ്രമം നടത്തുമെന്നും വിദേശകാര്യ വക്താവ് പ്രത്യാശ പ്രകടിപ്പിച്ചു

അരവിന്ദ് കേജ്രിവാളിന് നല്ലൊരു ഭരണം കാഴ്ചവയ്ക്ക്ട്നാകട്ടെയെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു പ്രധാനമൃന്ത്രീയുടെ ആശംസകൾക്ക് നന്ദി അറിയിച്ചു അരവിന്ദ് കേജ്രിവാൾ ക്ടേന്ദ്രൻ്ട്രുക്കാരും ആം ആദ്മി സർക്കാരും യോജിച്ച് പ്രവർത്തിച്ച് ഡ്ൽഹിയെ അഭിമാന നഗരമാക്കി മാറ്റണമെന്ന് പ്രതികരിച്ചു

ന്യൂഡൽഹിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തർക്കവിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ട്രൈബ്യൂണലിന് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ ജമ്മു കശ്മീരിലെ കേന്ദ്ര വിഷയങ്ങൾ മാത്രമാണ് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നത്

അതുവരെ ട്രൈബ്യൂണലിന്റെ ഛണ്ഡിഗഡ് ബഞ്ചായിരിക്കും ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും സർവ്വീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ഇന്നലെ മാത്രം നൂറിലേറെ പേർ മരിച്ചു

ആരോഗ്യമേഖലയിലെ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ബീജിംഗിൽ എത്തി ചൈനീസ് അധികൃതരുമായി ചർച്ച നടത്തി

പ്രതിസന്ധി ഘട്ടത്തിൽ ചൈനയ്ക്കു വേണ്ടി എല്ലാ സഹായവും ചെയ്യുമെന്ന് ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപ്പത്പ് വിക്രം മിസ്രി അറിയിച്ചു

നേപ്പാളുമായി അതിർത്തി പ്രങ്കിടുന്ന ഗ്രാമങ്ങളിൽ കൊറോണ ബാധ സംബന്ധിച്ചു പരിശോധന മുടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബിഹാർ സിക്കിം പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ബോധവൽക്കരണം ശക്തമാക്കുക

റാം മനോഹർ ലോഹൃ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരടങ്ങിയ അഞ്ച് സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത്

ഇവരെ താമസിയാതെ ക്യാമ്പിൽ നിന്ന് വിടും

സന്ദർശനത്തിനിടെ അദ്ദേഹം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ജംബോ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ സർവ്വീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശ്ര്യാണ് തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്

രണ്ടു പേരുടെ നില അതീവ ഗുരുതരം

കല്ലാർ ടണലിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്

യെദ്യൂരപ്പ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിന്റെ ഗുണമേൻമ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ പദ്ധതിക്ക് രാജ്യത്തെ കർഷകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്

ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ അഞ്ച് രൂപ ലാഭം കിട്ടിയാൽ മതി

ഇക്കൂാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ബന്ധപ്പെട്ടവരെ ചൂർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കുത്തക കമ്പനികൾ മാത്രമാണ് എതിർത്തെന്നും മുന്ന്തി ചേർത്തലയിൽ പറഞ്ഞു